പുത്തുമലയിലും തിരച്ചിൽ പുരോഗമി ക്കുന്നു ്മ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ സംഘം തിരിച്ചെത്തി

ഐ

സ്കൂളുകൾ മുതൽ ബഹിരാകാശം വരെയും ഡിജിറ്റൽ പേയ് മെന്റുകൾ മുതൽ ദുരന്തനിവാരണം വരെയും മേഖലകളിൽ പുതിയ ശക്തികളുമായി സഹകരണത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബഹിരാകാശ ഗവേഷണ മേഖലയിലെ പുരോഗതി ടെലിമെഡിസിൻ വിദൂര വിദ്യാഭ്യാസം കാലാവസ്ഥാ മുന്നറിയിപ്പ് തുടങ്ങിയ മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ സഹായകര മാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂട്ടാനിലെ റോയൽ യൂനിവേഴ് സിറ്റിയിൽ വിദ്യാർഥികളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള ദൌത്യത്തിൽ ഇന്ത്യയും ഭൂട്ടാനും സ്വാഭാവിക പങ്കാളികളാണ് ചരിത്രം ഭൂമിശാസ്ത്രം സംസ്കാരം പാരമ്പര്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും അടുത്ത് ബന്ധപ്പെട്ടുകിടക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങൾ ആദ്യം എന്ന ആശയത്തിലാണ് ഇന്ത്യ ഭൂട്ടാൻ ബന്ധം നിർവചിക്കപ്പെട്ടിരി ക്കുന്നതെന്നും മോദി വൃക്തമാക്കി കഠിനാധാനത്തിലൂടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയി ക്കണമെന്നും യുവത്വകാലമാണ് അതിന് പറ്റിയ സമയമെന്നും വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി ഭൂട്ടാനിൽ എത്തിയത് ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് എണ്ണക്കപ്പലിലുള്ള ഇന്ത്യ ക്കാരെ മോചിപ്പിക്കാൻ ചർച്ച തുടരുകയാണെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു കപ്പലിൽ നിന്ന് മോചിതരായ ഇന്ത്യ ക്കാരെ എത്തിക്കാൻ നടപടി ക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കും ജിബ്രാൾട്ടർ അധികൃതർ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാർക്കെ തിരായ എല്ലാ കുറ്റകൃത്യങ്ങളും ഔപചാരികമായി ഒഴിവാക്കിയി ട്ടുണ്ടെന്നും തിരിച്ചുവരാനുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയെന്നും മുരളീധരൻ എറണാകുളത്ത് വ്യക്തമാക്കി ഉരുൾപൊട്ടലുണ്ടായ മലപ്പുറം കവളപ്പാറയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി

തെര ച്ചിലിനായി ഹൈദരാബാദ് നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘവും എത്തിയിട്ടുണ്ട് ശാസ്ത്രജ്ഞരും ഗവേഷകരും ഉൾപ്പെട്ടതാണ് ആറംഗ സംഘം

ജി പി ആർ എസ് ഉപയോഗിച്ചുള്ള തിരിച്ചിൽ തുടങ്ങിയതിനാൽ തൽക്കാലം സൈനിക സേവനം ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയാണ് സൈന്യം ദൌത്യം അവസാനിപ്പിക്കുന്നത് ഇന്നലെ കവളപ്പാറയിൽ നിന്നും ലഭിച്ച സൈനികൻ വിഷ്ണുവിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതി കളോടെ സംസ്കരിച്ചു മന്ത്രി ജി സുധാകരൻ അൽപ്പ സമയംമുമ്പ് കവളപ്പാറയിലെത്തി ഭൂതാനത്തെ ദുരിതാശ്ചാസ ക്യാമ്പും മന്ത്രി സന്ദർശിച്ചു

വയനാട് പുത്തുമല ഉരുൾപ്പൊട്ടലിൽ കാണാതായവർക്കു വേണ്ടി തെരച്ചിൽ തുടരുന്നു കാണാതായവരുടെ ബന്ധുക്കൾ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലാണ് തിരച്ചിൽ നടത്തുന്നത്

ആർ എഫ് പൊലീസ് ഫയർഫോഴ്സ് എന്നിവയ്ക്ക് പുറമെ വൈദഗ്ധ്യം നേടിയ സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് പുത്തുമലയിൽ ദുരന്തത്തിൽപ്പെട്ട ഏഴുപേരെ യാണ് ഇനി കണ്ടെത്താനുള്ളത് ഉരുൾപൊട്ടലിൽ ഏറ്റവുമധികം നാശനഷ്ടമുണ്ടായ പുത്തുമല മേഖലയിൽ വൈദ്യുതി പുനസ്ഥാപിച്ചു മുണ്ടക്കൈ അപ്പമല ചൂരൽമല വില്ലേജ് എക്സ്ചേഞ്ച് ഏലവയൽ എന്നീ ട്രാൻസ് ഫോർമറുകൾക്ക് കീഴിലുള്ള സ്ഥലങ്ങളിലാണ് വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചത് ആറു കിലോമീറ്ററോളം ഇലവൻ കെ വി ലൈൻ പുതുക്കി പണിയുകയും ഒരു കിലോമീറ്റർ പുതിയ ലൈൻ വലിക്കുകയും ചെയ്തതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു പ്രളയത്തിൽ മുങ്ങിയ വീടുകളിലെ വയറിംഗ് പരിശോധന കെ എസ് ഇ ബി എൽ ഇലക്ട്രിക്കൽ ഇൻസ്പക്ടറേറ്റ് മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ ദ്രുത ഗതിയിൽ നടന്നു വരികയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്നും നാളെയും ചിലയിടങ്ങ ളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ഓരോ മേഖലയിലും പ്രളയം വരുത്തിയ നഷ്ടം വിവിധ വകുപ്പുകൾ കൃത്യമായി കണക്കാക്കി കൊണ്ടിരിക്കുക യാണെന്ന് കലക്ടർ എസ് സാംബശിവറാവു അറിയിച്ചു വയനാട്ടിൽ പ്രളയ ജലത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇന്ന് ശുചീകരണ യജ്ഞം തുടങ്ങി ഒരു ദിവ സത്തെ ശുചീകരണ യജ്ഞത്തിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെ ടുക്കുന്നത് കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ ആശാവർക്കർമാർ സി ഡി എസ് ജീവനക്കാർ എന്നിവരും ശുചീ കരണയജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ഗ്രാമപഞ്ചായ ത്തിലും വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണം

ദുരിതാശ്ചാസ കേന്ദ്രങ്ങളിലും മറ്റും നിരവധി പേർ കഴിയുന്ന സാഹചര്യത്തിൽ രോഗം പടരാൻ സാധ്യത കൂടുതലാണെ ന്നും ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു എല്ലാ ആശുപത്രികളിലും ആവശ്യമായ മരുന്നുകൾ എത്തിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു

സപ്തംബർ രണ്ടിന് നടത്താൻ നിശ്ചയിച്ച പരീക്ഷ സപ്തംബർ ആറിലേക്ക് മാറ്റിയതായി പൊതുവിദ്യാഭ്യാസ ഡയരക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു സിറാജ് ദിനപത്രം തിരുവനന്തപുരം യൂനിറ്റ് മേധാവി കെ എം ബഷീറിനെ ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യലഹരിയിൽ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പോലീസ് റിപ്പോർട്ട് സിറാജ് മാനേജ് മെന്റ് തള്ളി റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് യൂനിറ്റ് മാനേജർ സെയ്ഫുദ്ദീൻ ഹാജി തിരുവനന്തപുരത്ത് പറഞ്ഞു തന്റെ ഭാഗം കേൾക്കാതെയാണ് പോലീസ് റിപ്പോർട്ട് തയാറാക്കിയത് സംഭവം നടന്ന ദിവസം പുലർച്ചെ മൂന്നര മുതൽ അവിടെ ഉണ്ടായിട്ടും തന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അപകട ശേഷം ബഷീറിന്റെ ഫോൺ കാണാതായതിൽ അന്വേഷണം വേണമെന്നും സെയ്ഫുദ്ദീൻ ഹാജി ആവശ്യപ്പെട്ടു

ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവന ന്തപുരത്ത് ആരംഭിച്ചു ആദ്യ മൂന്ന് ദിവസം സംസ്ഥാന സെക്രട്ടേ റിയറ്റും ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സംസ്ഥാന സമി തിയുമാണ് ചേരുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് പ്രധാന ചർച്ചയെന്നാണ് റിപ്പോർട്ടുകൾ

ഇന്നലെ രാത്രി വിവാഹത്തോ ടനുബന്ധിച്ച് സംഗീത നിശക്കിടെ സ്റ്റേജിന് സമീപമാണ് സ്ഫോട നമുണ്ടായത്

സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടി ല്ല

ദേവരാജ് റസിഡൻഷ്യൽ സ്കൂളിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ സ്വാതന്ത്ര്യദിന പതാക ഉയർത്താൻ സ്ഥാപിച്ച കൊടിമരം മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾക്ക് ഷോക്കേറ്റ ത്

മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ അഞ്ച് ലക്ഷം രൂപ വീതം അടിയന്തര സഹായം പ്രഖ്യാപിച്ചു സിറോ മലബാർ സഭയുടെ നിർണായക സിനഡിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിൽപ്പ ന വ്യാജരേഖാവിവാദം തുടങ്ങിയ വിഷയങ്ങൾ സിനഡ് ചർച്ച ചെയ്യുമെന്ന് സഭ അറിയിച്ചു

ന്യൂഡൽഹിയിൽ ബി ജെ പി അധ്യക്ഷൻ അമിത് ഷായുമായി യെദ്യൂരപ്പ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരു മാനമായത് മറ്റന്നാൾ രാവിലെ പാർട്ടി നിയമസഭാകക്ഷി യോഗം ചേരുമെന്നും ഉച്ചകഴിഞ്ഞ് മന്ത്രിസഭാ വികസനം നടക്കുമെന്നും യെദ്യൂരപ്പ ട്വിറ്ററിൽ അറിയിച്ചു നിലമ്പൂർ നാടുകാണിചുരത്തിൽ ഗതാഗതം പുനസ്ഥാപിക്കാൻ നാലുമാസമെങ്കിലും വേണ്ടിവരുമെന്ന് മന്ത്രി ജി സുധാകരൻ അറി യിച്ചു വനംവകുപ്പിന്റെ സഹായത്തോടെ താൽക്കാലിക പാത നിർമ്മിക്കാനാണ് ആലോചനയെന്ന് മന്ത്രി സ്വകാര്യചാനലിനോട് പറഞ്ഞു കൊൽക്കത്തയിൽ നടക്കുന്ന ഡ്യൂറന്റ് കപ്പിൽ സെമി ഉറപ്പാ ക്കിയ ഗോകുലം കേരള എഫ് സി അവസാന ഗ്രൂപ്പ് മത്സരത്തിന് ഇന്നിറങ്ങും ട്രാവുവാണ് എതിരാളികൾ ഗോകുലത്തിന് രണ്ട് ജയവുമായി ആര് പോയിന്റാണുള്ളത് ഇംഗ്ലണ്ടിൽ ലോക ഭിന്നശേഷി ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അനീഷ്

രാജന് ജന്മനാടായ ഇടുക്കി ചെറുതോ ണിയിൽ ബുധനാഴ്ച പൌര സ്വീകരണം നൽകും രണ്ട് മത്സര ങ്ങളിൽ അനീഷ് മാൻ ഓഫ് ദ മാച്ചായിരുന്നു പാലക്കാട് കഞ്ചിക്കോട് ബൈക്കിൽ നിന്ന് വീണവരുടെ മേൽ ബസ്സ് കയറി രണ്ടുപേർ മരിച്ചു പല്ലശ്ശേന മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശി കളാണ് അപകടത്തിൽപ്പെട്ടത്

താമരശ്ശേരി കൈതപ്പൊയിൽ ചീരക്കുഴിയിൽ സ്വദേശി ശിഹാബാണ് ആണ് മരിച്ചത്

കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് കെമിസ്ട്രി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായിരുന്ന രാധാ ബാലകൃഷ്ണൻ നിര്യാതയായി